തലസ്ഥാനമായ മാലിയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിപങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയിസ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയു ഏറ്റവും പ്രമുഖനേതാവായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ആദ്യ മാലെദ്വീപ് സന്ദർശനമാണിത്

കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് അബ്ദുള്ള യാമിനെയാണ് സോലിഹ് പരാജയപ്പെടുത്തിയത് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് വിജയത്തിനു ശേഷം സോലിഹ് പറഞ്ഞിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം ശ്രീ സോലിഹുമായി പ്രധാനമന്ത്രി പ്രതിനിധിതല ചർച്ച നടത്തും അടിസ്ഥാന സൌകര്യം ആരോഗ്യസുരക്ഷ മാനവവിഭവശേഷി വികസനം സമ്പർക്കം മുതലായ മേഖലകളിലുൾപ്പെടെ തങ്ങളുടെ വികസന മുൻഗണനകളുടെ സാക്ഷാൽക്കാരത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹം പ്രധാനമന്ത്രി മാലെദ്വീപ് ഗവൺമെന്റിനെ അറിയിക്കും ജനാധിപത്യപരവും സമാധാനപൂർണ്ണവുമായ മാലെദ്വീപിനെ കാണാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ശ്രീ

പുതിയ നിക്ഷേപങ്ങളും പ്രതിരോധമുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും മാലെദ്വീപുമായുള്ള ബന്ധം മെച്ചപ്പെടാൻ ഈ കൂടിക്കാഴ്ച വഴിയൊരുക്കിയേക്കും

എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ രംഗത്ത് തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കി

മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റ ശ്രീ ആഷിക് കുന്ദ്ര ഇന്നലെ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥറുടെ യോഗത്തിൽ സംസ്ഥാനത്ത് സമാധാനപരവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്തു

ബി ജെ പിയുടെ മൂന്നാഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്നാണ് പുറത്ത് വന്നത് എട്ട് സ്ഥാനാർത്ഥികളാണ് ഈ ലിസ്റ്റിലുള്ളത് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ എതിർക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കിയത് മുൻ ബി ജെ പി നേതാവായ ജസ്വന്ത് സിംഗിന്റെ മകൻ മാനവേന്ദ്ര സിംഗിനെയാണ് ചില സിറ്റിംഗ് എം എൽ എ മാരെ ബി ജെ പി ഒഴിവാക്കിയിട്ടു

മുൻ സംസ്ഥാന പ്രസിഡന്റ് പൊന്നല ലക്ഷ്മയ്ക്കും ഗാൻഗൂൺ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുക

അതേസമയം ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നിയമസഭ കക്ഷി നേതാവുമായ കൃഷൻ റെഡ്സി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡിസംബർ ഏഴിനാണ് തെലങ്കാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടക്കുക

അദ്ദേഹത്തിനെതിരായ ഒളികൃാമറാ ദൃശൃങ്ങൾ വൈറലായതോടെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിഷന് പരാതി നൽകൂകയായിരുന്നു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ രാജേഷ് കോൺഗ്രസ് നേതാക്കളുടെ ഒളിക്യാമറാ ദൃശൃങ്ങൾ തയാറാക്കുന്നതായി പറയുന്ന ദൃശൃങ്ങളാണ് വൈറലായത്

കാറ്റ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് നീങ്ങുന്നതിനാൽ അറബിക്കടലിലും കേരളതീരത്തും മത്സൃതൊഴിലാളികൾക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടു ് നാളെയും മറ്റെന്നാളും അറബിക്കടലിന്റെ തെക്ക് കിഴക്കും ലക്ഷദ്വീപിലും സുരക്ഷാ മുന്നറിയിപ്പ് ബാധകമായിരിക്കും

പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്നലെ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്തിരുന്നു

ഹർജി ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ദേവസ്വംബോർഡ് പ്രസിഡന്റ് എ പദ്മകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും പ്രളയത്തിൽ പമ്പയിലു ായ നാശം കൂടുതൽ ആളുകൾക്കായി അടിസ്ഥാന സൌകര്യമൊരുക്കാനുള്ള പ്രയാസങ്ങൾ യുവതികൾ വന്നാൽ പ്രത്യേക സൌകര്യങ്ങൾ ഉ ാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങൾ നിരത്തിയാകും ഹർജി നൽകുക

ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടു ്

എസ് ആർ ടി സി

പത്തനംതിട്ടയിൽ നിന്നും എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് കെ

ആർ ടി സി കോൺവോയ് അടിസ്ഥാനത്തിൽ സർവ്വീസ് നടത്തി അതേസമയം കെ

ശശികലയ്ക്ക് സബ് ഡിവിഷനൽ മജിസ്ട്രേറ്റ് കൂടിയായ തിരുവല്ല ആർ ഡി

ഇതോടെ റാന്നി പോലീസ് സ്റ്റേഷനു മുമ്പിൽ ഐകൃവേദി നടത്തിയ നാമജപ പ്രതിഷേധ സമരം അവസാനിച്ചു അതേസമയം ശബരിമല ദർശനത്തിനെത്തിയ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനെ പോലീസ് അൽപസ്സമയം മൂമ്പ് കസ്റ്റഡിയിൽ എടുത്തു

ഒരാഴ്ച നീ ു നിൽക്കുന്ന സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി നാളെ വിയറ്റ്നാമിലെത്തും ഇന്തോ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം മെച്ചപ്പെടുത്താൻ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉപകരിക്കും കേന്ദ്രസഹമന്ത്രി ആനന്ദ്കുമാർ ഹെഗ്ഡെ എം പിമാരായ കമഖ്യ പ്രസാദ് താസ ഡോ

ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്

നേരത്തെ പാർലമെന്ററികാര്യ സമിതി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിരുന്നു

പദംസിയുടെ നിര്യാർണ്ത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗാധദുഃഖം രേഖപ്പെടുത്തി

നിലവിൽ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ

ഇന്ന് ജയിക്കുന്ന ടീമിന് ഗ്രൂപ്പ് ചാമ്പ്യൻമാരുടെ തിളക്കത്തോടെ സെമി ഫൈനലിൽ മൽസരിക്കാനാകും

ടൂർണമെന്റിന്റെ ടോപ് സ്വീഡായ തായ്ലന്റ് താരം കൂൻലാവത്ത് വിറ്റിസാമിനെയാണ് സെമിയിൽ ലക്ഷ്യ നേരിടുക

ഇത് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാനും ചൊവ്വാഴ്ച മുതൽ മഴ പെയ്യാനും സാധ്യതയു ് ഗജ ചുഴലിക്കാറ്റ് ശക്തികുറഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലേക്ക് നീങ്ങിയതായും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു